സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് രോഗബാധിതർക്ക് ധനസഹായം നൽകാൻ അനുമതി

ആരോഗൃ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഊർജ്ജിതമാക്കി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകനായോഗം ചേർന്നു

മാവോയിസ്റ്റ് ആക്രമണത്തിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു

കർണാടകത്തിലും ഡൽഫ്പിയ്ടിലുമായി രണ്ട് പേർ മരിച്ചു കൂടുതൽ വിവരങ്ങളുമാ്യി കിരൺ ശങ്കർ

സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്തയച്ചു സംസ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ ആശുപത്രി ചെലവുകൾ ലഭിക്കാനും പ്രഖ്യാപനം വഴിയൊരുക്കും വൈറസ് ബാധ നേരിടുന്നതിനുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിനും ധനസഹായം ലഭിക്കും

ഇവരുമായി നേരിട്ട് ഇടപഴകിയവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു മഹാമാരി നിയന്ത്രിക്കുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജപ്പാൻ പത്യയ്ലാന്റ് അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം വൈറസ് ഇനങ്ങളെ വിജയകരമായി വേർതിരിക്കാനായ അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ

കൊറോണ രോഗ ബാധയുടെ പശ്ചാത്തലത്തിൽ ഇവയുടെ വിതരണം മെച്ചപ്പെടുത്തുകയും പൂഴ്ത്തിവയ്പ്പ് തടയുകയുമാണ് ലക്ഷ്യം

അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് എല്ലാ ജില്ലകളിലും നിരീക്ഷണ സംഘത്തേയും വിന്യസിച്ചിട്ടുണ്ട് നഗ്റോട്ടയിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ തുറന്നു

കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അദ്ധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സഹമന്ത്രി അനുരാഗ് താക്കൂർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ധനകാര്യമന്ത്രിമാർ മുതിർന്ന കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു

എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില താഴുന്നതിനാൽ തീരുവ വർദ്ധന ഉപഭോക്താക്കളെ സാരമായി ബാധിക്കാനിടയില്ല

തലസ്ഥാന ജില്ലയിൽ കൂട്ടായ്മകളും യാത്രയും പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ കെ

ജനങ്ങൾ പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കണമെന്ന് കളക്ടർ പറഞ്ഞതായ വാർത്ത തെറ്റിദ്ധാരണ പരത്തൂന്നതാണെന്നൂം അദ്ദേഹം അറിയിച്ചു

ജില്ലയിലെ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിർദ്ദേശങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് എല്ലാവരും ഇത് വായിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു വായുസഞ്ചാരമുള്ള മുറികളാണ് തെരഞ്ഞെടുക്കേണ്ടത് മുറികളോടു ചേർന്ന് പ്രാഥമികാവശ്യങ്ങൾ നിർവ്വഹിക്കാൻ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഉണ്ടായിരിക്കണം ആ മുറിയിൽ തന്നെ വേറൊരാൾ ഒപ്പം താമസിക്കുകയാണെങ്കിൽ കാറന്റൈൻ ചെയ്യുന്ന ആളിൽ നിന്ന് ഒരു മീറ്റർ അകലം പാലിക്കണം മുതിർന്ന പൌരന്മാർ ഗർഭിണികളായ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്ക് രോഗപ്രതിരോധശേഷി കുറവായതിനാൽ അവരുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കണം

ഛത്തീസ്ഗഡ് സായുധസേന മർദൂം മേഖലയിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് ആക്രമണം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു നാരായൻപൂർ അതിർത്തിയിൽ വെച്ചാണ് ഉഗ്രശേഷിയുള്ള ഐ

ബോംബ് ഉപയോഗിച്ച് മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തിയത്

അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്നലെ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്